ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശപത്രികാ സമർപ്പണം നാളെ അവസാനിക്കും അന്തിമഘട്ട സ്ഥാനാർത്ഥി നിർണയവുമായി രാഷ്ട്രീയ പാർട്ടികൾ

എക്സിറ്റ് പോൾ ഫ്ലിങ്ങൾ പ്രസിദ്ധീകരിക്കാവൂ എന്ന് മാധ്യമങ്ങളോട് തെര്ഞ്ഞെടുപ്പ് കമ്മീഷൻ

അൽപസമയത്തിനകം ദക്ഷിണകൊറിയയെ നേരിടും

തെരഞ്ഞെടുപ്പ് അടുത്തോടെ രാഷ്ട്രീയ്പാർട്ടികളുടെ സ്ഥാനാർത്ഥിനിർണയവും അവസ്മാൻഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്

ജെ

ജെ

യും സഖ്യ കക്ഷികളായ ജനതാദൾ യു ഉം എൽ

മാർക്ക് ബി ജെ

കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംങ് നവാദയ്ക്കു പകരം ബഹുസരായിൽ മത്സരിക്കും

തെലങ്കാനയിൽ നിന്നുള്ള ആറ് സീറ്റുകളും ഉത്തർപ്രദേശിലെ മൂന്ന് സീറ്റുകളും പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും ഓരോ സീറ്റുകളും കേന്ദ്രമന്ത്രി ജെ

ന്യൂഡൽഹിയിൽ ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാണ് പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് കർണ്ണാടകയിൽ ജനതാദൾ എസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച്

ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പി ഡി

ടിവി ചാനലുകൾ അടക്കമുള്ള മാധ്യമങ്ങൾക്കും വെബ്സ്ടൈറ്റുകൾക്കും കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട്

സി

ആവശ്യം ശ്രീ രാഹുൽഗാന്ധിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം മറുപടി നൽകിയിട്ടില്ലെന്ന് എ ഐ

കേരളകോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല അറിയിച്ചു

പാർട്ടി നേതാവും രാംപൂർ മണ്ഡലത്തിലെ നിലവിലെ എംഎൽഎ യുമായ മുഹമ്മദ് അസംഖാൻ രാംപൂരിൽ നിന്ന് മത്സരിക്കും

ജെ പി നേതാവ് യെദിയൂരപ്പയുടെ ഡയറിയെന്ന പേരിൽ കോൺഗ്രസ് വ്യാജരേഖ ചമക്കുകയായിരുന്നെന്നും ശ്രീ

സ്ത്രീ പുരുഷൻ എന്നിവരികൾക്കു പുറമെ മുതിർന്ന പൌരന്മാർക്കും ഭിന്ന ശേഷിക്കാർക്കും വേണ്ടിയാണ് മൂന്നാമത് ഒരു വരി കൂടി ഉണ്ടാവുക കേന്ദ്ര തെരഞ്ഞെടുപ്പു കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പോളിംഗ് ബൂത്തിൽ പുതിയ ക്രമീകരണം നടത്തുന്നത്

ജെ

ജെ ഡി എം എൽ

പൂർണചന്ദ്രനായിക് ബസന്തി മാലിക് ദേബരാജ് മൊഹന്തി സുകന്തനായിക് ത്രിനാഖ് ഗമാങ് എന്നിവരെയാണ് അയോഗ്യരാക്കിയത് ഇവർ നേരത്തെ തന്നെ ബി ജെ ഡി യിൽ നിന്നും രാജി വച്ചിരുന്നു

സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു

ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിലാണ് ഇരുവരും ഇപ്രകാരം ആഹ്വാനം ചെയ്തത്

ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി ഉപരാഷ്ട്രപതിയുടെ വസതിയിൽ സംവദിക്കുകയായിരുന്നു ശ്രീ

വിശപ്പ് വിവേചനം നിരക്ഷരത ദാരിദ്ര്യം ജാതിവെറി തുടങ്ങിയവയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും യുവാക്കൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് സൃഷ്ടിപരമായ നിലപാട് വികസിപ്പിച്ചെടുക്കുന്നതിന് ഒപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണത വരുത്താൻ യുവജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

പഞ്ചാബിലെ പത്താൻകോട്ടിൽ നടന്ന ചടങ്ങിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്തു വാർധകൃസഹജമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വൈദ്യസഹായം നൽകി പെൻഷൻ സംബന്ധിച്ച പരാതികൾക്കും പരിഹാരമായി

ചുഴലിക്കാറ്റ് നാശം വിതച്ച മേഖലകളിൽ ഇന്ത്യൻ നാവികസേനയും ഐ

എസ് സുജാത ഐ

എസ് സാരഥി ഐ

എസ് ഷാർദ്ദൂൽ എന്നീ കപ്പലുകൾ രക്ഷാ പ്രവർത്തനം നടത്തിവരികയാണ് മൊസാമ്പിക്കിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ അഭ്യർത്ഥനപ്രകാരമാണ് നാവികസേന രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്

ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ ദ്വീപിനു സമീപം ഉണ്ടായ ഭുകമ്പത്തെതുടർന്നാണ് മുന്നറിയ്ക്കിപ്പ് നൽകിയത്

ഓഗോസാഗു പ്രവിശ്യയിലെ ഫുലാനി ഗ്രാമത്തിലാണ് സംഭവം നായാടികളുടെ സമൂഹമായ ഡോഗോനുകളും ഫുലാനി ഗ്രാമീണരുമായാണ് ഏറ്റുമുട്ടൽ നടന്നത് ഇവർ തമ്മിൽ വർഷങ്ങളായി സംഘർഷം തുടരുകയാണെന്ന് മനുഷ്യാവകാശസംഘടനകൾ പറഞ്ഞു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ആണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്

യുഡിഎഫ് സ്ഥാനാർഥികളായ ബ്രിന്നി് ബഹന്നാൻ ആന്റൊ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർക്കും ജാമ്യം ലഭിച്ചു